വൈറസ് ബാധയുടെ പശ്ചാത്ത്ലൂത്തിൽ ഹോളി ആഘോഷവേളയിൽ പക്കെടുക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വ്യോമയാന മേഖലയിൽ നേരിട്ടുളള വിദേശ നിക്ഷേപത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം

ഡൽഹിയിൽ സർക്കാർ ആശുപത്രികളിൽ മികച്ച നിലവാരത്തിലുളള ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലും സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു വരികയാണ് മന്ത്രിമാരുടെ സംഘം ഇന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു

ഇൌ വർഷം ഒരു തരത്തിലുമുള്ള ആഘോഷ പരിപാടികളിലും താൻ പങ്കെടുക്കില്ലെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ജെ

നദ്ദയും ഹോളി ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചു

ജനങ്ങൾ വ്യക്തിശുചിത്വം പാലിക്കണമെന്നും ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട് കൈകൾ വൃത്തിഹീനമായി കാണപ്പെട്ടാൽ സോപ്പ് ഉപയോഗിച്ച് ഒഴുക്ക് വെള്ളത്തിൽ കഴുകണം

ആരോഗൃ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഡോക്ടറുടെ സേവനം തേടണം

പനിയോ ചുമയോ ഉള്ളവരുമായി നേരിട്ട് സമ്പർക്കം പാടില്ലെന്നും നിർദ്ദേശത്തിൽ പറയുന്നു

ഇന്ത്യയിലേയ്ക്ക് അടിയന്തിരമായി യാത്ര ചെയ്യേണ്ടവർ ഇന്ത്യൻ എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ പുതിയ വിസ നേടണമെന്ന് ആരോഗൃ മന്ത്രാലയം നിർദ്ദേശം നൽകി

സ്ഥിതിഗതികൾ ശക്തമായി നിരീക്ഷിച്ച് വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ ദിവസം വധശിക്ഷ നടത്താനിരിക്കെ പവൻകുമാർ ഗുപ്ത രാഷ്ട്രപതിയ്ക്ക് ദയാഹർജി നൽകിയതിനെ തുടർന്ന് വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റി വച്ചിരുന്നു

ഐ

ഇതിനെ ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജികളാണ് ജസ്റ്റിസ് ആർ

സാങ്കേതിക കാരണങ്ങളാലാണ് വിക്ഷേപണം മാല്ലിപ്പ്യ്ക്കേണ്ടി വന്നതെന്ന് ഐ

ആർ ഒ പ്രസ്താവനയിൽ വൈകാതെ പുതിയ വിക്ഷേപണ്ട് തീയതി അറിയിക്കുമെന്നും പ്രസ്താവനയിലുണ്ട്

ലോകസഭയും രാജൃസഭയും തുടരെതുടരെ നിർത്തിവയ്ക്കേണ്ടതായി വന്നു

വോയിസ് രാവിലെ ലോക്സഭ സമ്മേളിച്ചപ്പോൾ ഡൽഹി അക്രമ വിഷയം ചർച്ച ചെയ്യണമെന്ന മുദ്രാവാകൃങ്ങളും പ്തക് കാർഡുകളുമായി കോൺഗ്രസ് ടി

കെ എസ് പി ബി

പി ഇടതുപാർട്ടി അംഗങ്ങൾ മുന്നോട്ടു വന്നു

എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ഇത് അംഗീകരിക്കാതെ മുദ്രാവാക്യം വിളി തുടർന്നു

അതേസമയം രാജ്യസഭയിലും ഡൽഹി വിഷയത്തിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് പ്രതിപക്ഷാംഗങ്ങളുടെ നിരവധി നോട്ടീസ് തനിക്ക് ലഭിച്ചതായി ചെയർമാൻ എം

ഹോളിയ്ക്ക് ശേഷം ചർച്ചയാകാമെന്ന നിലപാടു തന്നെയാണ് ശ്രീ നായിഡുവും കൈക്കൊണ്ടത് എന്നാൽ ചർച്ച വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഡി

കെ എസ് പി ബി

സി ഇടതുകക്ഷികൾ സഭയുടെ നടുത്തളത്തിലെത്തി ബഹളം വച്ചു ഇതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു

കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതു മൂലം സ്വർണക്കള്ളക്കടത്ത് കൂടുന്നതായും ഇതുമൂലം സംസ്ഥാനത്തിനു വൻതോതിൽ നികുതി ചോർച്ച ഉാകുന്നതായും ധനമന്ത്രി തോമസ് ഐസക് മറുപടി നൽകി സ്വർണത്തിന്റെ അനധികൃത വൃപാരം തടയുന്നതിന് കച്ചവട സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീ

പ്രതിപക്ഷത്തെ വി

സതീശനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്

എയർ ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനാണ് എഫ്

ഐ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ പ്രവാസി ഇന്ത്യാക്കാർക്ക് എയർ ഇന്ത്യയുടെ മുഴുവൻ ഓഹരികളും വാങ്ങുവാൻ സാധിക്കും

നിയമാനുസരണം പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതും കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിയമ ഭേദഗതിയെന്ന് മിന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി നിർമ്മലാ സ്ീതാരാമൻ പറഞ്ഞു

പത്ത് പൊതുമേഖലാ ബാങ്കുകളുടെ ലയന തീരുമാനവും മന്ത്രിസഭ അംഗീകാരം നൽകി അടുത്തമാസം ഒന്ന് മുതൽ ലയനം പ്രാബലൃത്തിലാകും

ജനുവരി മുതൽ ചില അവശ്യ സേവനങ്ങളുടെ വെബ്സൈറ്റുകളും പോസ്റ്റ് പെയ്ഡ് ലാന്റ്ലൈൻ ടെലിഫോൺ സേവനങ്ങളും താൽക്കാലികാടിസ്ഥാനത്തിൽ പുനസ്ഥാപിച്ചിരുന്നു